വിദേശ രാജ്യങ്ങളിൽ ത്രാമസിക്കുന്ന ഇന്ത്യൻ ജനതയാണ് രാജ്യത്തിന്റെ യഥാർത്ഥ് സാംസ്കാരിക വാഹകരെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്

ശ്രമങ്ങൾ അനുവദിക്കില്ലെന്ന് മുഖൃമന്ത്രി പിണറായി വിജയൻ

രാജ്യമെമ്പാടും വിവിധ സേനാകേന്ദ്രങ്ങളിൽ ഇന്ന് വ്യോമസേനയുടെ രൂപീകരണ ദിനാഘോഷം നടക്കുകയാണ്

ഗാസിയാബിദിലെ ഹിൻഡാൻ എയർഫോഴ്സ് സ്റ്റേഷനിൽ നടക്കുന്ന വാർഷികാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യ സേവനത്തിനായി വ്യോമസേന അംഗങ്ങൾ നടത്തുന്ന പരിശ്രമങ്ങളെ അദ്ദേഹം അഭിനന്ദിച്ചു കൂടുതൽ വിവരങ്ങളുമായി സുരേഷ്

രണ്ടാം ലോകമഹായുദ്ധത്തിൽ സജീവ പ്രങ്കാളിത്തം വഹിച്ചതോടെ റോയൽ ഇന്ത്യൻ എയർഫോഴ്സ് എന്നു പ്പേതിൽ അറിയപ്പെട്ടു ഇന്ത്യ സ്വതന്ത്രമായശേഷമാണ് ഇന്ത്യൻ പ്രത്രീക്ങളും പ്രത്യേക ചിഹ്നങ്ങളും സ്വന്തമായത്

വിദേശ രാജ്യങ്ങളിൽ സമാധാന രക്ഷാദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും മികച്ച സേവനം കാഴ്ചവെക്കുന്നു

അത്യന്താധുനിക വിമാനങ്ങളും ഏറ്റവും പുതിയ ആയുധശ്രേണിയുമായി രാജ്യത്തിന്റെ അഭിമാന സ്തംഭമായി ഇന്ത്യൻ വ്യോമസേന മാറി ഗാസിയാബാദിൽ ഇന്ന് നടക്കുന്ന വാർഷിക ദിനാഘോഷ പരിപാടിയിൽ രാജ്യരക്ഷാമന്ത്രി നിർമ്മല സീതാരാമൻ സംബന്ധിക്കുന്നു

കഴിഞ്ഞ ദിവസം രാത്രി താജിക്കിസ്ഥാൻ തലസ്ഥാനമായ ദുഷാൻബേയിൽ ഇന്ത്യൻ ജനതയ്ക്ക അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം നുറ്റാണ്ടുകളായി ഇരു രാജ്യങ്ങളും തമ്മിൽ മികച്ച ബന്ധമാണുള്ളതെന്നും അദ്ദേഹം വൃക്തമാക്കി വൈദ്യുതി ശുദ്ധഊർജ്ജം ഡിജിറ്റൽവത്ക്കരണം എന്നീ മേഖലകളിൽ ഇന്ത്യൻ ഗവൺമെന്റ് നിരവധി കാര്യങ്ങൾ ചെയ്തതായും അദ്ദേഹം പറഞ്ഞു രാജ്യങ്ങൾ തമ്മിലുള്ള വാണിജ്യം വർദ്ധിപ്പിക്കാനും ആളുകൾ തമ്മിലുള്ള ബന്ധം വർദ്ധിപ്പിക്കാനും ഇന്ത്യൻ ജനതയോട് അദ്ദേഹം ആഹാനം ചെയ്തു ഔദ്യോഗിക സ്വീകരണ പരിപാടിക്കു ശേഷം താജിക്കിസ്ഥാൻ പ്രസിഡന്റ് ഇമാമൊലി റാമോണുമായി രാഷ്ട്രപതി ഇന്ന് കൂടിക്കാഴ്ച നടത്തും

ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ജസ്റ്റിസുമാരായ എസ്

കൌൾ കെ

ജോസഫ് എന്നിവരുൾപ്പെട്ട ബഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത് ത്രിപുര പീപ്പിൾസ് ഫ്രണ്ടാണ് അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താൻ പൌരത്വ രജിസ്റ്റർ പ്രസിദ്ധീകരിക്കണമെന്നാവശൃപ്പെട്ട് ഹർജി നൽകിയത്

ഇരുപതാം നൂറ്റാണ്ടിന് ശേഷം ബംഗ്ലാദേശിൽ നിന്നും കുടിയേറിയവർ അസമിലുണ്ട്

ചിദംബരത്തിന്റെയും മകൻ കാർത്തി ചിദംബരത്തിന്റെയും മുൻകൂർ ജാമ്യം നവംബർ ഒന്ന് വർ നീട്ടി ഡൽഹിയിലെ പ്രത്യേക കോടതി ജഡ്ജി ഒ

ഇന്നല്ലെങ്ക പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയാണ് ഉച്ചകോടി ഉദ്ഘാടനം ചെയ്തത്

എൻ

സുസ്ഥിര വികസന രംഗത്ത് ഇന്ത്യ പ്രധാന പങ്ക് വഹിക്കുന്നതായി അറിയിച്ച എസ്പിനോസ ഭാവിയിൽ ഇന്തൃയുമായി കൂടുതൽ സഹകരിച്ച് പ്രവർത്തിക്കുന്നതിൽ തല്പരയാണെന്നും അറിയിച്ചു ഐക്യരാഷ്ട്ര സഭ സംവിധാനത്തിലെ വിവിധ മേഖലകളിൽ ഇന്ത്യയുടെ പ്രയത്നങ്ങളെ അഭിനന്ദിച്ച അവർ യു എൻ സമാധാന ദൌത്യത്തിൽ ഇന്ത്യയുടെ പങ്കാളിത്തം വളരെ ശക്തമാണെന്നും പറഞ്ഞു

പി ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് അവാർഡ് സ്വന്തമാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അവർ അഭിനന്ദിച്ചു

ജമ്മു ഡിവിഷനിൽ വോട്ടർമാരുടെ പ്രത്യേകിച്ച് യുവാക്കളുടെ നീണ്ട നിര പോളിംഗ് ബുത്തുകളിൽ പ്രകടമാണ്

കൂടുതൽ വിവരങ്ങളുമായി സുരേഷ്

തെരഞ്ഞെടുപ്പ് നടക്കുന്ന പ്രദേശങ്ങളിൽ സംസ്ഥാന ഗവൺമെന്റ് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടൂണ്ട് കശ്മീർ താഴ്വരയിൽ ശ്രീനഗർ മുൻസിപ്പൽ കോർപ്പറേഷൻ പരിധിയിലുള്ള മൂന്ന് വാർഡുകളിലും കുപ്പാര ഹന്ത്വാര ബന്ദിപോറ ബുദ്ഗാം ബാരമുള്ള അനന്ത്നാഗ് മുൻസിപ്പൽ കമ്മിറ്റികളിലും ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കും കാർഗിൽ ലേ മുൻസിപ്പൽ കമ്മിറ്റികളിലും ആദ്യഘട്ടത്തിൽ വോട്ടിംഗ് നടക്കും

ഒരുമ തകർക്കാൻ ആസൂത്രിത ശ്രമങ്ങളാണ് നടന്നുവരുന്നത് തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിന്റെ സാമൂഹ്യ ചരിത്രംകൂടി വിലയിരുത്തിവേണം വിധിയെ പരിഗണിക്കേണ്ടത് ഗവൺമെന്റിന്റെ നിലപാടല്ല സൂപ്രീം കോടതി വിധിയിലേക്ക് എത്തിച്ചതെന്ന് മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു ശബരിമല സ്ത്രീപ്രവേശനം സംബന്ധിച്ച് സാമൂഹിക മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി വിധിയെ കാണേണ്ടത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു

അറബിക്കടലിൽ രൂപം കൊണ്ടിരിക്കുന്ന ന്യൂനമർദ്ദത്തിന്റെ ഫലമായാണിത് ഒമാനിലേക്കും യെമനിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കുന്ന ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായി ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് തീരസംരക്ഷണ സേനയുടെ നിരീക്ഷണ കപ്പലുകളും ഡ്രോണിയർ വിമാനങ്ങളും കേരളതീരത്ത് വിന്യസിച്ചിട്ടുണ്ട് ലക്ഷദ്വീപ് മിനികോയി തമിഴ്നാട് തീരങ്ങളിൽ ജാഗ്രത പാലിക്കുന്നുണ്ട് മീൻ പിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്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

ആറ് വിക്കറ്റുകൾ വീഴ്ത്തിയ ഹർഷ് ത്യാഗിയുടെ മികവിലാണ് ഇന്ത്യ വൻ വിജയം കരസ്ഥമാക്കിയത്